ചന്ദ്രശേഖരൻ

എസ്

ഇന്ധനവില് ഇന്നും വർദ്ധിച്ചു

പണിമുടക്ക് പ്രഖ്യാപിച്ച കെ എസ്

സി

ശശീന്ദ്രൻ

പ്രളയ പുനരധിവാസ പാക്കേജിനായി വിശദമായ റിപ്പോർട്ട് ഈമാസംതന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കു മെന്ന് മന്തി ഇ

നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് ട്രൈബ്യൂണൽ രൂപീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ഇതു സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ കോടതി തീരുമാനിക്കട്ടെയെന്നും മന്ത്രി അഭിപ്രാ യപ്പെട്ടു സാലറി ചലഞ്ചിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ജീവന ക്കാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ നിലപാട് നവകേരള നിർമ്മാ ണത്തിന് ഗുണകരമല്ല പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത് രക്ഷാപ്രവർത്തന ത്തിൽ ഗവൺമെന്റിന് ലഭിച്ച സ്വീകാരൃതയാണെന്നും മന്ത്രി പറഞ്ഞു നവ കേരള നിർമ്മാണത്തിന് വിദേശ സാങ്കേതിക സഹായം തേടുന്നതിൽ തെറ്റി ല്ലെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കി

ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രാജ്യത്ത് ഒന്നര ലക്ഷത്തോളം ആരോഗ്യ സേവനകേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യസഹ മന്ത്രി അശ്വനി കുമാർ ചൌബെ അറിയിച്ചു വിദൂര ഗ്രാമ പ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചാണ് കേന്ദ്ര ങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം ബീഹാറിൽ അറിയിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് ലഭിക്കുന്നതിന് ഈ കേന്ദ്രങ്ങ ളിൽ ടെലി മെ ഡി സിൻ സംവിധാനം ഏർപ്പെടുത്തു മെന്നും ചൌബെ പറഞ്ഞു

എസ് എൽ

വിദേശരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളാണ് പി

ആർ എസ്

വനഭൂപടനിർമ്മാണം സർവ്വേ വെള്ളപ്പൊക്കം ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളുടെ വിശകലനം തുടങ്ങിയവയാണ് ഉപഗ്ര ഹങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അറി യിച്ചു ചന്ദ്രശേഖർ മന്ത്രിസഭയിലെ പെട്രോളിയം മന്ത്രിയായിരുന്ന സത്യപ്ര കാശ് മാളവ്യ അന്തരിച്ചു

പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സിൽ ചേർന്നു

സംസ്കാരം നാളെ രാവിലെ അലഹബാദിൽ നടത്തും

ഇ ടിക്കറ്റിംഗ് അഴിമതി അടുത്തകാലത്തായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പരി ഹാരമെന്ന നിലയിൽ പിഴ വർദ്ധിപ്പിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത് റെയിൽവേബോർഡ് ഭേദഗതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മെയിൽ മുംബൈയിൽ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാസങ്ങ ളായി നടത്തിവന്നു തട്ടിപ്പ് പിടികൂടിയിരുന്നു സെക്കന്റുകൾകൊണ്ട് തത്കാൽ ടിക്കറ്റുകൾ ഒന്നിച്ച് ബുക്ക്ചെയ്യാവുന്ന സോഫ്റ്റ്വെയറാണ് ഉപ യോഗിച്ചിരുന്നത്

കഴിഞ്ഞ ഡിസംബറിൽ ഒരു സിബിഐ ഉദ്യോഗ സ്ഥനും ്ബന്ധുവും ചേർന്ന് വൻതോതിൽ ടിക്കറ്റ് തട്ടിപ്പ് നടത്തിയിരു ഇപ്പോഴത്തെ നിയമത്തിൽ ഇ ടിക്കറ്റിംഗ് തട്ടിപ്പ് നടത്തുന്ന ന്നു വർക്കെതിരെ കർശന നിയമങ്ങൾ നിലവിലില്ലാത്തതാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് റെയിൽവെയുടെ വിലയിരുത്തൽ

അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച കെ

സി ജീവനക്കാ രുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി എ

സമരം ചെയ്യാൻ തുടങ്ങുന്നവർ കെ എസ്

യുടെ നില നിൽപ്പ് കൂടി മനസ്സിലാക്കണമെന്ന് മന്ത്രി ഒരു വാർത്താചാനലിനോട് പറ ഞ്ഞു ഗവൺമെന്റ് നയമാണ് മാനേജ്മെന്റ് നടപ്പാക്കുന്നതെന്നും വൃക്തി പരമായി ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാ ക്കി പ്രതിഷേധമറിയിക്കാൻ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റ് സഹായമില്ലെ ങ്കിൽ കെ എസ് ആർ ടി

പ്രശ്ന പരി ഹാര സാധ്യതകൾ ഇനിയും അടഞ്ഞിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടുത്തമാസം രണ്ട് മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിംഗിൾ ഡ്വൂട്ടി പരിഷ്കരണവും സർവ്വീസ് വെട്ടിക്കുറച്ചതും താൽക്കാ ലിക ജീവനക്കാരെ പിരിച്ചു വിട്ടതും ഉൾപ്പെടെ കാര്യ ങ്ങളാണ് പണിമുടക്കിന് ആധാരമായി ജീവനക്കാർ ഉന്നയിക്കുന്നത്

ഭരണ ചുമതലയിൽനിന്ന് ബിഷപ്പ് പിന്മാറിയെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരു മെന്ന നിലപാടിലാണ് കന്യാസ്ത്രീകൾ ചുമതല ഒഴിഞ്ഞതോടെ ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാൻ പൊലീസിന് തടസ്സമുണ്ടാകില്ലെന്ന് കരു തുന്നതായി അവർ പറഞ്ഞു അതിനിടെ കന്യാസ്ത്രീകളോടൊപ്പം നിരാഹാരസമരം നടത്തിയിരുന്ന സ്റ്റീഫൻ മാത്യുവിനെ പൊലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി

ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് ഹോങ്കോങ്ങിനെ നേരി ടും

കേരള ബ്ലാസ്റ്റേഴ്സിലെ ഓഹരികൾ സച്ചിൻ ടെണ്ടുൽക്കർ വിറ്റു

കേരള ബ്ലാസ്റ്റേഴ്സ് ജീവിതത്തിലെ അവി ഭാജ്യ ഘടകമായിരുന്നുവെന്നും തന്റെ ഹൃദയം എപ്പോഴും ബ്ലാസ്റ്റേഴി നൊപ്പം ഉണ്ടാകുമെന്നും സച്ചിൻ പറഞ്ഞു

പുതിയ സീസൺ തുടങ്ങാനിരിക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സച്ചിൻ കൈയ്യൊഴിയുന്നത്

കോഴിക്കോട് ദേവഗിരി കോളേജിലെ അമൃത് ഭാസ്കർ അജയ്

നാ യർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ശിവശങ്കർ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടത് ഉരുൾപൊട്ടലിനെത്തുടർന്ന് തകർന്ന കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം റോഡ് നാളെ മുതൽ താൽക്കാലികമായി ഗ്രതാഗതത്തിന് തുറ ന്നുകൊടുക്കും

അമ്പായത്തോട് മുതൽ ബോയ്സ് ടൌൺ വരെ പാൽചുരം റോഡിൽ മൂന്നര കിലോമീറ്ററിലേറെ റോഡ് ഉരുൾപൊട്ടലിൽ തകർന്നിരു ന്നു കന്നിമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും നാളെ പുലർച്ചെ മുതൽ പതിവ് പൂജകൾ തുടങ്ങും അടുത്ത ഒരു വർഷത്തെ താന്ത്രിക ചുമതല് തന്ത്രി കണ്ഠരര് രാജീവര് ഇന്ന് ഏറ്റെ ടുക്കും

സ്വകാര്യ തീർത്ഥാടക വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമേ അനുവദി ക്കൂ

നിലയ്ക്കൽ പമ്പ റൂട്ടിൽ കെഎസ്

കഴിഞ്ഞ ഏപ്രിലിൽ മറ്റിടങ്ങളിൽ നടപ്പാക്കിയ നിരക്ക് വർദ്ധന നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഇന്ന് മുതൽ ബാധകമാക്കിയതാണെന്ന് കെ എസ്

സി അറിയിച്ചു ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായ ഇടുക്കി പാംബ്ള അണക്കെട്ടിൽനിന്ന് വൈദ്യുതി ഉത്പാദനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് ഉന്നതാധികാരികൾ അണക്കെട്ടിൽ പരിശോധന നടത്തി ഡയറക്ടർ ബോർഡ് അംഗം എൻ വേണു ഗോപാലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘമാണ് അണക്കെട്ടിലും കരിമണൽ പവർഹൌസിലും എത്തിയത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അവസാനവട്ട പരിശോ ധനയ്ക്കായി വ്യോമയാന വകുപ്പിലെ വിദഗ്ധസംഘം നാളെ മട്ടന്നൂരിലെ വിമാനത്താവളത്തിലെത്തും